രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയത് പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

കോടതി ജാമ്യം നിഷേധിച്ചു

തുടർന്ന് ഇത്തരത്തിൽ ഒരു ആയുധമുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ആഗോള ബഹിരാകാശരംഗത്ത് ഇന്ത്യ ഒരു സുപ്രധാന ശക്തിയായി മാറിയതായി അദ്ദേഹം പറഞ്ഞു

മീ അകലെ മിസൈൽ തകർക്കുകയായിരുന്നു

ഇത് പെരുമാറ്റചട്ട ലംഘനമാണെന്ന് ആരോപിച്ച നിരവധി പ്രതിപക്ഷ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്

ഒ യുടെ വാണിജ്യ സ്ഥാപനമായ ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ തലവൻ രാകേഷ് ശശിഭൂഷൺ പറഞ്ഞു

ബഹിരാകാശ രംഗത്തെ ഈ വളർച്ച ഇന്ത്യക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു നല്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പോലീസ് ഐ ബി കേന്ദ്ര ഇന്റലിജൻസ് എൻ ഐ എ

ഭീകരരോട് അനുഭാവം കാട്ടുന്ന ഗവൺമെന്റ് ഉദ്യോസ്ഥർ സഹായം നൽകുന്ന അദ്ധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ സമിതി നിരീക്ഷിക്കും ഭീകര പ്രവർത്തനത്തിന് പണമെത്തുന്ന വഴികളെക്കുറിച്ചും ശൃംഖലയെ ക്കുറിച്ചും അന്വേഷണം നടത്തും അത്തരത്തിലുള്ള ഫണ്ടിന്റെ വരവ് നിർത്തലാക്കും ജമ്മു പോലീസ് എ

ജി

യാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നത്

ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് രാഷ്ട്രപതി ബൊളിവിയയിൽ എത്തിയത് സാന്താക്രൂസിൽ നടന്ന ചടങ്ങിൽ ബൊളീവിയൻ പ്രസിഡന്റ് ഇവാ മോറോലിസ് ശ്രീ കോവിന്ദിന് ബഹുമതി സമ്മാനിച്ചു

ക്രൊയേഷ്യ സന്ദർശിച്ച ശേഷമാണ് രാഷ്ട്രപതി ബൊളിവിയയിൽ എത്തിയത് ചിലി സന്ദർശിച്ചു ശേഷം അടുത്ത മാസം നാലിന് രാഷ്ട്രപതി മടങ്ങും

കെ പ്രധാനമന്ത്രി തെരേസ മെയ് കൊണ്ടുവന്ന പരിഷ്കരിച്ച ബ്രക്സിറ്റ് കരാർ ബ്രിട്ടീഷ് പാർലമെന്റ് വീണ്ടും വോട്ടിനിട്ട് തള്ളി ഇത് മൂന്നാം തവണയാണ് ബ്രക്സിറ്റ് കരാർ പാർലമെന്റ് നിരാകരിക്കുന്നത് ഇതോടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടന്റെ വിഭജന നടപടികൾ അവതാളത്തിലായി

കരാറിനെ വീണ്ടും നിരാകരിച്ച പാർലമെന്റിന്റെ നടപടി ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നും ബ്രക്സിറ്റ് സാധ്യമാക്കാൻ യു കെ ഗവൺമെന്റ് സമ്മർദ്ദം തുടരുമെന്നും തെരേസ മെയ് പറഞ്ഞു

ഇരുരാജ്യത്തെയും പ്രിമുഖ നയതന്ത്രജ്ഞർ ഉൾപ്പെട്ട യോഗമാണ് ഭീകരവിരുദ്ധ നീക്കം ശക്തമാക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് തെക്കനേഷ്യൻ മേഖല അന്താരാഷ്ട്ര ഭീകരസംഘടനകളുടേയും അതിർത്തി കടന്നുള്ള ഭീകരസംഘടനകളുടേയും ഭീഷണിയിലാണെന്ന് യോഗം വിലയിരുത്തി സ്വന്തം മണ്ണിലെ ഭീകരർക്കും ഭീകരസംഘടനകൾക്കുമെതിരെ പാകിസ്ഥാൻ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇരുരാജ്യങ്ങളും കരുതുന്നുവെന്ന് യോഗത്തിന് ശേഷം അമേരിക്ക വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി ഭീകരരുടെ സഞ്ചാരം അടക്കം തടയുന്നതിന് പരസ്പര വിവര വിനിമയം ശക്തമാക്കുന്നതിനെക്കുറിച്ചും ചർച്ചയുണ്ടായി

തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പത്തനംതിട്ടയിൽ എൽഡിഎഫിന്റെ വീണാ ജോർജ് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴിക്കാടൻ മുസ്ത്രീംലീഗ് സ്ഥാനാർത്ഥികളായ ഇടി മുഹമ്മദ് ബ ഷീറും പി കെ കുഞ്ഞാലിക്കൂട്ടിയും പ്പൊന്ന്മുനി മലപ്പുറം എന്നിവി ടങ്ങളിലും ഇന്നലെ പത്രിക നൽകി

വിദേശകടപ്പത്ര വിപണിയിൽ പ്രവേശനം നേടുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായാണ് സംസ്ഥാനത്തിന്റെ വികസന ആവശ്യത്തിന് വിദേശത്ത് നിന്ന് ബോണ്ട് വഴി ധനസമാഹരണം നടത്തുന്നത്

റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ജി എസ് ടി യിൽ വരുത്തിയ ഇളവുകളും നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും

വിവിധ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളും സ്ഥാപനങ്ങളും ഇന്ന് വൈദ്യുതവിളക്കുകൾ ഒരു മണിക്കൂർ അണച്ചിടും ആഗോളതാപനത്തിന്റെ കെടുതികളിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാനുള്ള സന്ദേശം പ്രകരാൻ വേണ്ടിയാണ് ഇത്

അനിത ദുബെയാ യിരുന്നു ക്യൂറേറ്റർ

മൂന്നും നാലും സ്ഥാനങ്ങൾക്കായി മലേഷ്യയും കാനഡയും മത്സരിക്കും ഇന്നലെ നടന്ന സെമി ഫൈനലിൽ ഇന്ത്യ പോള ണ്ടിനെ തോൽപ്പിച്ചു

ദക്ഷിണ കൊറിയ ജപ്പാനെയും മലേഷ്യ കാനഡയെയുമാണ് തോൽപ്പിച്ചത്

എൽ ക്രിക്കറ്റ് മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിന്റെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു

ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് മുംബൈ ഇന്ത്യൻസിനെ ന്ദേരിടും

രാത്രി എട്ടിന് ഡൽഹിയിലാണ് മത്സർ

കിരീടത്തിനായി മാർഇവാനിയസ് കോളേജും യൂണിവേഴ്സിറ്റി കോളേജും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് സമാപന സമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും